സ്ഫോടനത്തെ തുടർന്ന് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഔദ്യോഗിക മാധൃമമായ എൻ എച്ച് കെ അറിയിച്ചു

ബേസിൽ തമ്പിയാണ് മാൻ ഓഫ് ദി മാച്ച സെമി ഫൈനൽ മത്സരവും വയനാട്ടിലാണ് നടക്കുന്നുത്